കോഴിക്കോട്ട്നിന്ന് രാവിലെ കൽപ്പറ്റ യിലെത്തുന്ന അദ്ദേഹം റോഡ്ഷോയ്ക്ക് ശേഷമായിരിക്കും പത്രിക സമർപ്പിക്കുക രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും സൈനൃത്തിന്റെ ആത്മവീരൃം തകർക്കാനും കോൺഗ്രസ് ഗൂഡാലോചന നടത്തുകയാണെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി

ഹരിത പ്രോട്ടോക്കോളിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആറ് ലക്ഷ ത്തിലധികം ഫ്ളെക്സ് ബോർഡുകൾ നീക്കം ചെയ്തതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാനത്ത് ശരാശരി താപനിലയിൽ വർധനയുണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും തുട രും

എൽ

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ ഇന്ന് നാമനിർദ്ദേ ശപത്രിക സമർപ്പിക്കും

സ്കൂൾ ഗ്രൌണ്ടിലെത്തും പ്രിയങ്കാ ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പമുണ്ടാകും തുടർന്ന് റോഡ്ഷോ ആരംഭിക്കും

പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തശേഷം ഉച്ചയ്ക്ക് മൂന്നോടെ മട ങ്ങും രാഹുലിന്റെ വരവ് പ്രമാണിച്ച് കനത്ത സുരക്ഷയാണ് വയനാട്ടിൽ ഒരു ക്കിയിരിക്കുന്നത് കൽപ്പറ്റ ടൌണും പരിസരവും എസ്

എഴുനൂറിലധികം ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന പോലീസ് സംഘവും മുന്നൂറിലധികം വരുന്ന ബോംബ് സ്കാഡും രംഗത്തുണ്ട് വയ നാട് കളക്ടറേറ്റ് ഇന്ന് പൂർണമായും എസ്

ജിയുടെയും പോലീസിന്റെയും നിയന്ത്രണത്തിലായിരിക്കും കളക്ടറേറ്റിലേക്ക് ജീവനക്കാരുടെ വാഹനങ്ങൾ കടത്തിവിടില്ലെന്നും രാവിലെ എട്ടിനകം ജീവനക്കാർ കളക്ടറേറ്റിൽ എത്ത ണമെന്നും ജില്ലാ കളക്ടർ എ അജയകുമാർ അറിയിച്ചു ഇന്നലെ രാത്രി ഒൻപതുമണി കഴിഞ്ഞാണ് രാഹുൽഗാന്ധി കരിപ്പൂരി ലെത്തിയത്

ഐ

ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി തൊട്ടു മുമ്പ് വിമാനത്താവളത്തിലെത്തിയിരുന്നു

നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയശേഷം വിമാനത്താവളത്തിനു പുറത്ത് തടിച്ചുകൂടിയ യു

എഫ് പ്രവർത്തകരെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു തുടർന്ന് രാഹുലും പ്രിയങ്കയും കോഴിക്കോട്ടേക്ക് പോയി

വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി മുഗുൾ വാസനിക് കെ

മജീദ് തുടങ്ങി ഒട്ടേറെ യു

എഫ് നേതാക്കൾ രാഹുലിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു കൽപ്പറ്റയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹ നങ്ങൾ ജനമൈത്രി ജങ്ഷനിൽനിന്ന് ബൈപ്പാസ് വഴി കടന്നുപോകണം ബത്തേരി മാനന്തവാടി ഭാഗത്തുനിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ കൈനാ ട്ടിയിൽനിന്ന് ബൈപ്പാസ് വഴി പോകണമെന്നും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസ് പ്രകടനപത്രിക പാകിസ്താന്റെ ഗൂഡാലോചനകളുടെ രേഖയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി രാജ്യത്തെ അസ്ഥി രപ്പെടുത്താനും സൈനൃത്തിന്റെ ആത്മവീരൃം തകർക്കാനും കോൺഗ്രസ് ഗൂഡാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു

കൊൽക്കത്തയിലും മഹാരാഷ്ട്രയിലെ ഗോണ്ടി യയിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമ ന്തി മിനിമം വേതനം ഉറപ്പാക്കുന്ന പ്രകടനപത്രികയിലെ നൃായ് പദ്ധതി പ്രധാ നമന്ത്രി നരേന്ദ്രമോദിയെയും ബി

യെയും പിടിച്ചുകുലുക്കിയിരിക്കു കയാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചു പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹത്തിന്റെ നിരാശ വൃക്ത മായും കാണാമെന്ന് സുർജേവാല ന്യൂഡൽഹിയിൽ പറഞ്ഞു ഭാവി ഇന്ത്യ യുടെ കർമ പദ്ധതിയാണ് പ്രകടനപത്രികയെന്നും അത് ഇന്ത്യയിലെ ജന ങ്ങളുടെ ശബ്ദമാണെന്നും കോൺഗ്രസ് വക്താവ് പറഞ്ഞു

വയനാ ട്ടിൽ ഏഴും കൊല്ലം പാലക്കാട് മണ്ഡലങ്ങളിൽ നാലു വീതവും ആറ്റി ങ്ങൽ എറണാകുളം എന്നിവിടങ്ങളിൽ മൂന്നുവീതവും പത്തനംതിട്ട കോട്ടയം ചാലക്കുടി ആലത്തൂർ പൊന്നാനി മലപ്പുറം വടകര കണ്ണൂർ എന്നിവിടങ്ങളിൽ രണ്ടുവീതവും മാവേലിക്കര ആലപ്പുഴ ഇടുക്കി കാസർകോട് എന്നിവിടങ്ങളിൽ ഒന്നുവീതവും പത്രികകളാണ് ഇന്നലെ ലഭി ച്ചത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ സുരേന്ദ്രൻ ഇന്ന് വീണ്ടും നാമ നിർദേശ പത്രിക നൽകും

കോഴിക്കോട്ടെ എൻ

റാന്നി കോടതി ഉത്ത രവ് പ്രകാരമാണ് നടപടി സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽവന്നശേഷം ഹരിത പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ആറ് ലക്ഷത്തിലധികം ഫ്ളക്സ് ബോർഡു കൾ നീക്കം ചെയ്തതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽനിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത് നീക്കം ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രചാരണത്തിന് ഫ്ളക്സ് ബോർഡുകൾ ഉപയോഗിക്കരുതെന്നും ഹരിത പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കണമെന്നും ടിക്കാറാംമീണ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു

കണ്ണൂർ നിയമസഭാ മണ്ഡല ത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത്

കേരളത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നില്ലെന്നും കേരളം നിർദ്ദേശിച്ച മാറ്റങ്ങൾ അംഗീകരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് അന്തിമ വിജ്ഞാ പനമിറക്കിയതെന്നും ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് വൃക്തമാക്കി സംസ്ഥാനത്ത് ശരാശരി താപനിലയിൽ വർധനയുണ്ടാകുമെന്ന കാലാ വസ്ഥാ നിരീക്ഷണകേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും തുടരും ആലപ്പുഴ യിൽ ഉയർന്ന താപനിലയിൽ മൂന്നുമുതൽ നാലുഡിഗ്രിവരെ വർധനയു ണ്ടാകും വയനാട് ഒഴികെ ജില്ലകളിൽ രണ്ട് മുതൽ മൂന്നുവരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരും

കാസർകോട് ജില്ലയിൽ ഇതുവരെ വേനൽമഴ ലഭിച്ചിട്ടില്ലെന്നാണ് കണക്കു കൾ വൃക്തമാക്കുന്നത്

സൂര്യാതപത്തെത്തുടർന്ന് എട്ടുപേർ കോഴിക്കോട് ജില്ലയിൽ ചികിത്സ തേടി ഇതിൽ ആറുപേർക്ക് പൊള്ളലേറ്റിരുന്നു

ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന് ജയം

സീസ ണിലെ ആദ്യ പരാജയമാണ് ചെന്നൈയുടേത് ഇന്ന് ഡൽഹി കാപ്പിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും കോഴിക്കോട്ടെ യു

രാഘവൻ അഞ്ചു കോടിരൂപ ആവശ്യപ്പെട്ടതായി ഒരു ഹന്ദി ടി വി ചാനൽ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു

അതേസമയം തനിക്കെതിരേ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുകയാണെന്ന് ജില്ലാ വരണാധികാരിക്കും സിറ്റി പോലീസ് കമ്മി ഷണർക്കും എം

രാഘവൻ പരാതി നൽകി തന്നെ വൃക്തിഹത്വ നട ത്താനും തിരഞ്ഞെടുപ്പിന്റെ സമയത്തെ പ്രതിച്ഛായ തകർക്കാനുമാണ് ശ്രമ മെന്ന് പരാതിയിൽ പറയുന്നു

അഞ്ച്കോടിരൂപ ആവശ്യപ്പെട്ടതായി തെളിയിച്ചാൽ സ്ഥാനാർഥിത്വം പിൻവലിച്ച് പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് രാഘ വൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർഥി രമൃ ഹരിദാസിനെതിരെ മോശം പരാമർശം നടത്തിയ എൽ

കൺവീനർ എ

രമ്യയിൽനിന്ന് തിരൂർ ഡി

രണ്ടുദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഡി

അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇതുമായി മുന്നോട്ടുപോകുമെന്നും രമൃഹരിദാസ് അറി യിച്ചു

റിപ്പോനിരക്കിൽ കുറവുവരുത്തു മെന്നാണ് പ്രതീക്ഷ ഫെബ്രുവരിയിൽ റിപ്പോനിരക്ക് കാൽശതമാനം കുറ ച്ചിരുന്നു കാസർകോട് ജില്ലയിൽ വ്യത്യസ്ത റോഡ് അപ്പകടങ്ങളിൽ രണ്ടുപേർ മരിച്ചു കുറ്റിക്കോലിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് കാർ യാത്ര ക്കാരിയായ കല്ല്യാണിയാണ് മരിച്ചത് കാഞ്ഞങ്ങാട് ഇരിയയിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ സീനദീപുവും മരിച്ചു കൊല്ലം പാരിപ്പള്ളി ആടുതലയിൽ കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ പത്താംക്ലാസ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു കല്ലുവാതുക്കൽ മരക്കുളം കോശി ഭവനത്തിൽ അലൻതോമസ് ആണ് മരിച്ചത് ചാത്തന്നൂർ എൻ

എസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം പതിനാലാം മൈലിൽ കഴിഞ്ഞദിവസം കെഎസ്ആർടിസി യൂം കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി ഗുരുതരമായി പരിക്കേറ്റ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൃശൂർ പഴയന്നൂർ കൂട്ടുപുരയ്ക്കൽ സഫിയയാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് അബ്ദുൽ ഖാദർ അപകടസ്ഥലത്തു തന്നെ മരണപ്പെട്ടിരുന്നു കണ്ണൂർ മട്ടന്നൂരിനടുത്ത് പരിയാരത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പതിനാലുകാരന് പരിക്കേറ്റു വീടിനടുത്തെപറ മ്പിൽ കളിക്കുന്നതിനിടെ കണ്ട സ്റ്റീൽ വസ്തു കൈയിലെടുത്തപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് പരിക്കേറ്റ വിജിലനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുവേണ്ടിയല്ലെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാ ണെന്നും ജനാധിപത്യ രാഷ്ട്രീയസഭ അധ്യക്ഷ സി

മാനന്തവാടിയിൽ എൽ

പൊതുയോഗത്തിൽ സംസാരിക്കു കയായിരുന്നു അവർ